നടിയെ ആക്രമിച്ച കേസ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂട്ടർ നിയമനത്തിൽ സർക്കാർ നിലപാട് അറിയിക്കാൻ വിചാരണ കോടതി നിർദ്ദേശം നൽകി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് നിർദ്ദേശം നൽകിയത്